മുരുള്ടീധര്ൻ ഗവർണറെ സന്ദർശിച്ച് പ്രളയദൂരിതാശ്ചാസ ്പ്രവർത്തനങ്ങളുടെ പുരോഗതി ചർച്ച ചെയ്തു

കാശ്മീരിൽ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് പ്രൈമറി സ്കൂളുകൾ നാളെ തുറക്കും പാകിസ്ഥാനുമായി ഇനിയുള്ള ചർച്ച പാക് അധീന കാശ്മീരിനെപ്പറ്റി മാത്രമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്

മലപ്പുറത്ത് കവളപ്പാറയിലും വയനാട് പുത്തുമലയിലും കാണാതായവർക്കുവേണ്ടി തെരച്ചിൽ തുടരുന്നു

കവളപ്പാറയിലും പുത്തുമലയിലും ദേശീയ ദുരന്ത നിവ്ട്രൂണ സേനയുടെ നാല് സംഘങ്ങൾ വീതം രക്ഷാ പ്രവർത്തനങ്ങ്ളിൽ പങ്കെടുക്കുന്നു

കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു

പ്രളയത്തിൽ തകർന്ന വയനാടിനെ തിരികെ പിടിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ശുചികരണത്തിൽ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങളുമായി വയനാട് ആകാശവാണി പ്രതിനിധി അരുൺ വിൻസന്റ്

ഇന്ന് ചിലയിടങ്ങളിൽ ീമഴയ്ക്ക് സാദ്ധ്യത

ഇന്ന് ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സഹായം ലഭ്യമാക്കാൻ ശ്രമിക്കണമെന്ന് ഗവർണർ മുരളീധരനോട് ശ്രീ അഭ്യർത്ഥിച്ചു പ്രകൃതിദുരന്തം മുലം സംസ്ഥാനത്തിനു നേരിട്ട നഷ്ടത്തെക്കുറിച്ച് ഗവർണർ കഴിഞ്ഞദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ ധരിപ്പിച്ചിരുന്നു കൃഷിമന്ത്രി മട വീഴ്ചയെ തുടർന്നുണ്ടായ കൃഷിനാശം വിലയിരുത്താനായി മന്ത്രി വി

നാശനഷ്ടം വിലയിരുത്തി കർഷകർക്ക് നഷ്ട പരിഹാരം നൽകാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു

ഫിറ്റ് നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഇവൃത്യെല്ലാം നാളെ തുറന്ന് പ്രവർത്തിക്കും

രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ ഉടൻ തേടണമെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു

ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

കൺവർജൻസ് അക്കാദമി ഗവേഷണ രംഗത്ത് വൻ കുതിച്ചു ചാട്ടം ലക്ഷ്യമിട്ട് മഹാത്മാ ഗാന്ധി സർവകലാശാല കാമ്പസിൽ പണികഴിപ്പിച്ചു കൺവർജൻസ് അക്കാദമിയ കോംപ്ളക്സിന്റെ ഉദ്ഘാടനം നാളെ ഗവർണർ പി സദാശിവം നിർവഹിക്കും ശാസ്ത്ര സാമൂഹികശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണം ഒരേ കൂരയ്ക്കു കീഴിൽ കൊണ്ടുവരികയും വിവിധ വിഷയങ്ങൾ സംയോജിപ്പിച്ചുള്ള ഗവേഷണത്തെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുകയുമാണ് കൺവർജൻസ് അക്കാദമിയയുടെ ലക്ഷ്യമെന്ന് വൈസ് ചാൻസലർ പറഞ്ഞു

ഭീകരവാദം അവസാനിപ്പിച്ചാൽ മാത്രമേ പാകിസ്ഥാനുമായി ഇനി ചർച്ചയുള്ളൂ ഹരിയാനയിൽ പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധമന്ത്രി ഭീകരതക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വൃക്തമാക്കി

എല്ലാ മേഖലകളിലും വൈകാതെ തന്നെ ടെലിഫോൺ സേവനം പുനരാരംഭിക്കുമെന്ന് ഗവൺമെന്റ് വക്താവ് രോഹിത് കൻസാൽ അറിയിച്ചു ശ്രീനഗറിലും മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും കൂടുതൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്

ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്

നടക്കാവ് സി ഐ ടി കെ അഷ് റഫ് ഉപഹാരം നല്കി